ദേശീയ പൌരത്വ രജിസ്റ്റർ തയ്യാറാക്കിയത് സുതാര്യമായും പക്ഷഭ്ഭേദമില്ലാതെയുമാണെന്ന് അസം മുഖ്യമന്ത്രി സർബാന്ന്ദ് സോണോവാൾ

ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം വോയിസ് പുതുക്കിയ ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ കരട് രൂപത്തിൽ ര ു കോടിയിലേറെ പേർ ഇടം പിടിച്ചിട്ടു ്

ഇട്ട്രം നേടാത്തവരെ കരുതൽ തടങ്കൽ ക്യാമ്പുകളിലേക്കോ പിദ്ദേശ് പ്രൈബ്യൂണലുകളിലേക്കോ അയക്കില്ലെന്ന് നേരത്തെ തന്നെ ക്യേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗ് ഉറപ്പ് നൽകിയിരുന്നു ഇന്ന് അസ്സാമിനും രാജ്യത്തിനും ഒരു പോലെ പ്രാധാന്യമുള്ള ദിവസമാണെന്ന് ഇന്ത്യ ഗവൺമെന്റ് രജിസ്റ്റാർ ജനറൽ സൈലേഷ് മാധ്യമങ്ങളെ അറിയിച്ചു ദേശീയ പൌരത്വ രജിസ്റ്റർ തയ്യാറാക്കലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായും പക്ഷഭേദമില്ലാതെയുമാണ് നടന്നിട്ടുള്ളതെന്ന് അസ്സാം മുഖ്യമന്ത്രി സർബാനന്ദ് സോണോവാൾ വൃക്തമാക്കി സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളും സമാധാനവും ശാന്തിയും പുലർത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു അസ്സമിലെ ജനങ്ങൾ നൽകുന്നഎല്ലാ പിന്തുണയ്ക്കും ശ്രീ സോണോവാൾ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോക്സഭയുടെ ശൂന്യവേളയിൽ ടി എം സി കോൺഗ്രസ് സി പി ഐ എം ആർ ജെ ഡി അംഗങ്ങൾ നടത്തിയ ആരോപണത്തിന് മറുപടി പറഞ്ഞ ആഭ്യന്തര മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് രജിസ്റ്ററിനായുള്ള ആവശ്യം ദീർഘനാളായി നിലനിന്നിരുന്നതായി ചൂ ിക്കാട്ടി രജിസ്റ്ററിന്റെ കരട് രൂപം മാത്രമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്നും കരട് രൂപത്തിൽ ഇടം നേടാനാവാത്തവർക്ക് വീ ും അപേക്ഷ സമർപ്പിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു

ദേശീയ പൌരത്വ രജിസ്റ്ററിന്റേത് ദേശീയ മനുഷ്യാവകാശ പ്രശ്നമാണെന്നും രാഷ്ട്രീയ പ്രശ്നമല്ലെന്നുമായിരുന്നു തൃണമൂൽ അംഗത്തിന്റെ വാദം ഇതിന് മറുപടി പറഞ്ഞ രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യനായിഡു നാളെ സഭ സമ്മേളിക്കുമ്പോൾ പ്രശ്നം ചർച്ച ചെയ്യാൻ ആദ്യ അവസരം നൽകാമെന്ന് ഉറപ്പ് നൽകി എന്നാൽ പ്രതിഷേധമുയർത്തിയവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ രാവിലെ സഭയിൽ ഉ ായിരുന്ന ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ അനുവദിച്ചില്ലെന്ന് ശ്രീ നായിഡു ഓർമ്മിപ്പിച്ചു എന്നാൽ പ്രശ്നത്തിൽ പ്രധാനമന്ത്രി തന്നെ വിശദീകരണം നൽകണമെന്ന് ആവശ്യത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉറച്ചു നിന്നതോടെ രാജ്യസഭ ഇന്നത്തേക്ക് പിരിയുകയാണു ായത്

ത്രേയിലത്തോട്ടം തൊഴിലാളികൾ തദ്ദേശിയർ തുടങ്ങിയവരെ ഇപ്പോഴത്തെ കരട് രജിസ്റ്റർ പ്രതികൂലമായി ബാധിച്ചുവെന്നും രജിസ്റ്റർ തയ്യാറാക്കലിന്റെ സുതാര്യതയിൽ സംശയിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു

വിചാരണ നേരിടാൻ സൂപ്രിംകോടതി ദയാനിധി മാരനോട് ആവശ്യപ്പെട്ടു

ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയ് ആർ ഭാനുമതി നവീൻ സിൻഹ എന്നിവർ അടങ്ങുന്ന ബഞ്ചാണ് കേസ് പരിഗണിച്ചത്

പണതിരിമറിയുമായി ബന്ധപ്പെട്ട് ചോക്സി പിടികിട്ടാപ്പുള്ളിയാണ് മെഹുൽ ചോക്സി ആന്റിഗ്വയിലുള്ളതായി വിദേശകാര്യ മന്ത്രാലയത്തിന് വിവരം ലഭിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ഐ ആർ സി ടി സിയുടെ ര ് ഹോട്ടലുകളുടെ പ്രവർത്തനാവകാശത്തിനുള്ള കരാർ ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകിയതിൽ ക്രമക്കേടുകൾ ഉ െന്ന് ക ത്തിയതിനെ തുടർന്നാണ് കേസ്

ചിദംബരത്തിന്റെ ഭാര്യ നളിനി മകൻ കാർത്തി മകന്റെ ഭാര്യ ശ്രീനിഥി എന്നിവരോടാണ് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ബ്രിട്ടണിലെ മെട്രോബാങ്ക് അക്കൌ ിനെ സംബന്ധിച്ചും അമേരിക്കയിലെ നാനോ ഹോൾസിംഗ്സ് എൽ എൽ സി യിലെ നിക്ഷേപങ്ങളെക്കുറിച്ചും കാർത്തി ചിദംബരം ഇതുവരെ വെളുപ്പെടുത്തിയിട്ടില്ലെന്ന് ആദായനികുതി വകുപ്പ് വ്യക്തമാക്കി കാർത്തിക്ക് പങ്കാളിത്തമുള്ള ചെസ്സ് ഗ്ലോബൽ അഡ്വൈസറി നടത്തിയ നിക്ഷേപങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താനും കാർത്തി തയാറായിട്ടില്ലെന്നും ഇത് കള്ളപ്പണ നിയമമനുസരിച്ചുള്ള കുറ്റകൃത്യമാണെന്നും ആദായനികുതി വകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു

സംസ്ഥാന ഗവൺമെന്റ് മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു

മുന്നോരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം ഊർജ്ജിതമാക്കി

മഴയും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പും പരിഗണിച്ചും മാത്രമേ ഷട്ടറുകൾ തുറക്കൂ എന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വൃക്തമാക്കി ഷട്ടറുകൾ തുറന്നാൽ വെളളമൊഴുകുന്ന ചാലുകളിലെ തടസ്സങ്ങൾ നീക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്

രാജ്യത്തിനുള്ളിലും അന്താരാഷ്ട്ര രംഗത്തും കച്ചവട മേഖലയിൽ ഇന്ത്യ നേരിടുന്ന തടസ്സങ്ങൾക്ക് ഇതോടെ പരിഹാരം ആകുമെന്നും ഒട്ടേറെ തൊഴിലവസരങ്ങൾക്ക് ഇത് വഴി തുറക്കുമെന്നും മന്ത്രി അറിയിച്ചു ലോജിസ്റ്റിക് വിഭാഗത്തിന്റെ പുതിയ ലോഗോ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീ സുരേഷ് പ്രഭു ഗവൺമെന്റ് സ്വീകരിച്ച മികച്ചു നടപടികളിലൂടെ വിദേശ കമ്പനികൾക്ക് മുന്നിൽ ഇന്ത്യ ആകർഷ്കമായ ഒരു ഉൽപാദന സേവന ലക്ഷ്യമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു

എന്നാൽ വനിതാ വിഭാഗം ഡബിൾസിൽ സന്യോഗിത ഘോർപടെ പ്രജക്ത സാവന്ത് സഖ്യം തുർക്കിയോട് പരാജയപ്പെട്ടു

രാജ്യസഭയിൽ എഴുതി നൽകിയ മറുപടിയിലാണ് സ്പോർട്ട്സിലെ ചതി തടയുന്നതിനുള്ള ബില്പിന്റെ കരട് തയാറായതായി അദ്ദേഹം അറിയിച്ചത് തെറ്റു ചെയ്യുന്നവർക്ക് പിഴ ചുമത്താനും കോടതിക്ക് മുന്നിൽ കൊ ു വരാനും ആണ് നീക്കം ബില്ലിന്റെ നിയമവശം പരിശോധിച്ച് വരികയാണ്